കടപ്പുറത്തെ വിജയ് സങ്കൽപ്പ് റാലിയെ മോദി അഭിസംബോധന ചെയ്യും

ജെ പി ക്കെതിരായ വോട്ട് കോൺഗ്രസ് ശിഥിലീകരിക്കു കയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ന്യായ് പദ്ധതി ബി ജെ

സി ജനറൽ സെക്ര ട്ടറി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ലഭിച്ച സംഭാവനകളുടെ കണക്ക് രാഷ്ട്രീയപാർട്ടികൾ മുദ്രവെച്ച കവറിൽ തെരഞ്ഞെടുപ്പ് കമ്മീ ഷന് നൽകണമെന്ന് സുപ്രീംകോടതി

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് ഡൽഹി കാപ്പിറ്റൽസിനെ നേരിടും കേരളത്തിലെ എൻ

എ പ്രചാരണത്തിന് ശക്തിപകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോട്ടെത്തും പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തി ലെത്തുന്ന അദ്ദേഹം റോഡ് മാർഗ്ഗം ആറുമണിയോടെ കോഴിക്കോട് ബീച്ചിലെത്തും കാസർകോട് മുതൽ പൊന്നാനി വരെ മണ്ഡല ങ്ങളിലെ എൻ

എ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന വിജ യ്സങ്കൽപ് റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

ജെ പിയുടെയും ബി

എസിന്റെയും സംസ്ഥാന നേതാക്കളും ഭാരവാഹികളും റാലിയിൽ പങ്കെടുക്കും

കടപ്പുറത്തെ വേദിയും പരിസരവും എസ്

ജിയുടെ നിരീക്ഷ ണത്തിലാണ് രണ്ടായിരത്തോളം പൊലീസ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട്ട് നിയോഗിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഗതാഗത നിയ ന്ത്രണം ഏർപ്പെടുത്തി വൈകീട്ട് മൂന്നു മുതൽ ദേശീയ പാതയിൽ മലപ്പുറം മുതൽ രാമനാട്ടുകര വരെയാണ് നിയന്ത്രണം

ജെ പി ക്കെതിരായ വോട്ട് കോൺഗ്രസ് ശിഥിലീകരിക്കു കയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു രാമ ക്ഷേത്രത്തിന്റെ പേരിൽ ബി ജെ പി വർഗീയ ചേരിതിരിവാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കാഞ്ഞങ്ങാട്ട് എൽ

എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണയോഗത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേതാക്കളടക്കം വലിയവിഭാഗം കൂട്ട ത്തോടെ ബി

പി യിലേക്ക് ചേക്കേറുകയാണ് ഇന്ത്യയിൽ ബദൽ നയം എടുത്തുകാണിക്കാൻ കേരളം മാത്രമേ ഉള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുൻ യു

എ ഗവൺമെന്റിന്റെയും എൻ ഡി എ യുടെയും കർഷക വിരുദ്ധനയങ്ങൾക്കെതിരെ കർഷകരെ അണിനിരത്തി ഇടതുപക്ഷത്തിന്റെ മഹാറാലിയും കർഷക പാർലമെന്റും ഉച്ചക ഴിഞ്ഞ് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നടക്കും ദേശീയതലത്തിൽ കർഷക സമരങ്ങൾ നയിച്ച നേതാക്കളും റാലിയിൽ പങ്കെടുക്കും പുൽപ്പള്ളി വിജയ ഹയർസെക്കണ്ടറിസ്കൂൾ മൈതാനത്താണ് കർഷക പാർലമെന്റ് തുടർന്ന് കർഷക മഹാറാലിയും പൊതുസമ്മേളനവും നടക്കും

എഫ് അടുത്ത ചൊവ്വാഴ്ച വയനാട്ടിൽ കർഷക റാലി സംഘടിപ്പിക്കും വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ സി

എം നട ത്തുന്ന കർഷക മാർച്ച് ആ പാർട്ടി വലിയ ദുരന്തമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് എ ഐ

സി സെക്രട്ടറി പി

പ്രളയത്തിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കർഷകൻ ദൂരിതാശ്വാസത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോ ഗസ്ഥന് കൈക്കൂലി നൽകാൻ വേണ്ടി സ്വന്തം വൃക്ക വിൽക്കാ നുണ്ടെന്ന് വീടിന് മുമ്പിൽ ബോർഡ് എഴുതിവെച്ചത് പിണറായി വിജയന്റെ കേരളത്തിലാണെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

എന്നിട്ടും രാഹുലിനെതിരെ കർഷക മാർച്ച് നടത്തുമ്പോൾ സി

എ മ്മിന്റെ ദുരവസ്ഥയോർത്ത് സഹതാപം തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം കർണാടകയിലും ഛത്തീസ്ഗഢിലും രാജസ്ഥാനിലും മധ്യപ്രദേ ശിലും പഞ്ചാബിലും കാർഷിക കടങ്ങൾ എഴുതിതളളിയിരുന്നു എന്നാൽ കേരളത്തിൽ കാർഷിക കടം എഴുതി തള്ളാൻ പിണ റായി ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും വിഷ്ണുനാഥ് പറഞ്ഞു കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ന്യായ് പദ്ധതി താഴെ തട്ടി ലുണ്ടാക്കിയ ചലനം ബി ജെ പി യെ ആശങ്കയിലാക്കിയതായി എ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ന്യായ് പദ്ധതി കോൺഗ്രസിന്റെ തട്ടിപ്പാണെന്ന കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റിലിയുടെ ആരോപണം ഭയം കൊണ്ടാണെന്ന് അദ്ദേഹം ഒരു വാർത്താചാനലിനോട് പറഞ്ഞു പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തിന്റെ അങ്കലാപ്പിൽ ബി ജെ പി നേതാക്കൾ പര സ്പരബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചുപറയുകയാണെന്ന് വേണു ഗോപാൽ ആരോപിച്ചു ഭൂരിപക്ഷസമുദായം കോൺഗ്രസിന് എതിരായതിനാലാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ അഭയം തേടിയതെന്ന ജെയ്റ്റിലിയുടെ ആരോപണം മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും വയനാടിനെപ്പറ്റി ജനങ്ങൾക്കറിയാമെന്നും വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് തമിഴ്നാട്ടിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സ രി ക്ക രു തെന്ന് അഭ്യർത്ഥിച്ചിരു ന്നെന്ന് താൻ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരദ് പവാർ അറിയിച്ചു എന്നാൽ ഈ ആവശ്യം രാഹുൽ അവഗണിച്ചതായി അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു പ്രാദേശിക നേതാക്കളുടെ വാക്കുകളാണ് അദ്ദേഹം ചെവിക്കൊണ്ടതെന്നും കോൺഗ്രസ് പ്രാദേശിക വികാ രങ്ങൾക്ക് വഴങ്ങുകയാണെന്നും പവാർ കുറ്റപ്പെടുത്തി റഫാലിൽ സുപ്രീംകോടതി ഈയിടെ പുറപ്പെടുവിച്ച ഉത്തര വിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പരാമർശ ത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി

പി എം

കാവൽക്കാരൻ കള്ളനാണെന്ന് സൂപ്രീംകോടതി വിധിച്ചതായി രാഹുൽഗാന്ധി പരാമർശിച്ചെന്നാണ് കേസ്

എം നരേന്ദ്രമോദി സിനിമയുടെ റിലീസിങ് തടഞ്ഞ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ നിർമ്മാതാവ് സുപ്രീംകോ ടതിയിൽ ഹർജി നൽകി

ഹർജി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ലഭിച്ച സംഭാവനകളുടെ കണക്ക് മുദ്രവെച്ച കവറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്ന് സുപ്രീംകോടതി എല്ലാ രാഷ്ട്രീയപാർട്ടികളോടും ആവശ്യപ്പെട്ടു

കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ സാധുത ചോദ്യം ചെയ്ത് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ നിർദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം സൈന്യത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് മുൻ സൈനിക മേധാവികളും സൈനികരുമുൾപ്പെടെ മുതിർന്ന പൌരന്മാർ സർവസൈന്യാധിപൻ കൂടിയായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് പരാതി നൽകി

അതിർത്തിക ടന്ന് നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ ഉൾപ്പെടെ സൈനിക നടപടികൾ സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ നേതാ ക്കളുടെ നിലപാട് അസാധാരണവും അംഗീകരിക്കാൻ പറ്റാത്ത തുമാണെന്ന് കത്തിൽ പറയുന്നു രാഷ്ട്രീയ പ്രചാരണത്തിൽ വ്യോമസേനാമേധാവി അഭിനന്ദൻ വർത്തമാന്റെയും മറ്റ് സൈനികരുടെയും ചിത്രങ്ങൾ ഉപയോഗി ക്കുന്നതിൽ അവർ നിരാശ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തെ ഉപയോഗിച്ച് വോട്ടു നേടാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി എന്നാൽ ഇന്ത്യൻ സൈന്യം രാജ്യത്തോടൊപ്പമാണെന്നും ബി ജെ പി യോടൊപ്പമല്ലെന്നും പാർട്ടി ട്വിറ്ററിൽ പറഞ്ഞു മുൻ സൈനിക തലവന്മാർ ഉൾപ്പെടെ മുതിർന്ന പൌരന്മർ രാഷട്രപതിക്ക് നൽകിയ കത്തിനോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ്

കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് എൽ

എഫ് നൽകിയ പരാതി വര ണാധികാരിയായ ജില്ലാ കലക്ടർ സ്ക്രീനിങ് കമ്മറ്റിക്ക് കൈമാ റി ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചാരണം നടത്തിയെന്നാണ് പരാതി കാസർകോട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ബാങ്കുകളും സംശയാസ്പദമായ ബാങ്ക് ഇടപാടുകൾ സംബ ന്ധിച്ച് ദിനംപ്രതി റിപ്പോർട്ട് ജില്ലാതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണമെന്ന് നിർദേശം ഇ മെയിൽ വഴിയാണ് റിപ്പോർട്ട് നൽകേ ണ്ടത്

കേരള കർണാടക അതിർത്തി മേഖലകളിലും ആറളം നിടുംപൊയിൽ മേഖലകളിലും പൊലീസും തണ്ടർ ബോൾട്ടും ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്

സംസ്ഥാനത്ത് ചട്ടം ലംഘിച്ച് ഡിസ്റ്റിലറികളും ബ്രൂവറികളും തുടങ്ങുന്നതിനെതിരെ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്

വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കേസെടുത്തു തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രെഡ്ജർ വാങ്ങിയതിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് വിജി ലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ എഫ് ഐ ആർ സമർപ്പിച്ചു ശബരിമല കർമ്മസമിതി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും അയ്യപ്പഭക്തരെ വ്യാജകേസിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കുകയും സംഘടനാ പ്രവർത്തനം ഗവൺമെന്റ് നിയമവിരുദ്ധമായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു വെന്നാരോപിച്ചാണ് സമരം

എൽ ക്രിക്ക റ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും രാത്രി എട്ടിന് കൊൽക്കത്തയിലാണ് മത്സരം ഇന്നലെ ജയ്പൂരിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് വിക്കറ്റിന് പരാ ജയപ്പെടുത്തി

കോഴിക്കോട് ചക്കുംകടവ് സ്വദേശി സലീം ആണ് അറസ്റ്റിലായത് നിരവധി നാർക്കോട്ടിക് കേസുകളിലെ പ്രതിയാണ് ഇയാൾ കാസർകോട് പെരിയ ഇര ട്ട ക്കൊ ല ക്കേ സിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട കൃപേഷ് ശരത് ലാൽ എന്നിവരുടെ മാതാപിതാക്കളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്

സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അഭിവാദ്യം സ്വീകരിച്ചു

കൊച്ചിയിലെ ബ്യൂട്ടിപാർലർ വെടിവെപ്പ് കേസിൽ ഇന്ന് തെളി വെടുപ്പ് നടത്തും അറസ്റ്റിലായ രണ്ട് പ്രതികളെ ബ്യൂട്ടിപാർലറി ലെത്തിച്ചാണ് തെളിവെടുപ്പ് രവി പൂജാരിയുമായി ബന്ധപ്പെട്ട കാസർകോട് സംഘമാണ് ക്വട്ടേഷൻ നൽകിയതെന്നാണ് റിപ്പോർട്ട് വലിയ നോമ്പിലെ നാല്പതാം വെള്ളി ആചരണ ത്തിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിലെ കുരിശിന്റെ വഴി പരിഹാര യാത്ര ഉച്ചകഴിഞ്ഞ് അവസാനിക്കും